ത കിഴക്കൻ ലഡാക്ക് മേഖലയിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ ഇന്ത്യ ചൈന സൈനികതല ചർച്ച ഇന്ന് ത സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റന്നാൾ ആന്റിബോഡി ദ്രുത പരിശോധന ആരംഭിക്കും ത ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടികൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായി

വാർത്തകൾ വിശദമായി ഗ്രാമീണ സമ്പദ് മേഖലയുടെ ഉത്തേജനത്തിനും കർഷകരെ സഹായിക്കുന്നതിനും ലക്ഷ്യമിടുന്ന രണ്ട് ഓർഡിനൻസുകൾ കോവിന്ദ് പുറപ്പെടുവിച്ചു രാഷ്ട്രപതി കാർഷികോല്പന്നങ്ങൾ തടസ്സങ്ങളില്ലാതെ വിൽപ്പന നടത്താനും കർഷകർക്ക് അവർ തെരഞ്ഞെടുക്കുന്ന സ്പോൺസർമാരിലൂടെ സ്വയം ശാക്തീകരിക്കാനും സഹായിക്കുന്ന ഓർഡിനൻസുകളാണ് പ്രാബല്യത്തിൽ വന്നത് ഓർഡിനൻസുകളിലൂടെ കാർഷിക മേഖലയുടെ പരിഷ്കരണത്തിന് ആവശ്യമായ നടപടികളെ പിന്തുണയ്ക്കണമെന്ന് കേന്ദ്രകൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മുഖ്യമന്ത്രിമാർക്കയച്ച കത്തിൽ ആവശ്യപ്പെട്ടു രുമ കിഴക്കൻ ലഡാക്ക് മേഖലയിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ ഇന്ത്യ ചൈന സൈനികതല ചർച്ച ഇന്ന് നടക്കും ടെലി കോൺഫറൻസിംഗിലൂടെയായിരിക്കും ലഫ്റ്റനന്റ് ജനറൽമാരുടെ ചർച്ച ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സമാധാന സംഭാഷണത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിലെ കിഴക്കനേഷ്യൻ ജോയിന്റ് സെക്രട്ടറി നവീൻ ശ്രീവാസ്തവയും ചൈനീസ് വിദേശകാര്യ ഡയറക്ടർ ജനറൽ വു ജിയാങ് ഹോയും ഇന്നലെ വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയ ചർച്ചയിലും തീരുമാനിച്ചിരുന്നു

രുമ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റന്നാൾ കോവിഡ് ദ്രുത പരിശോധന ആരംഭിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് സെക്രട്ടറി രാജൻ കോബ്രഗഡെ അറിയിച്ചു

പനി ബാധിതരെയും ശ്വാസകോശ രോഗികളെയും പ്രത്യേകം പരിശോധിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അറിയിച്ചു രുമ വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പരിശോധനയും ക്വാറന്റീനും ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മന്ത്രി ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു ആളുകൾ കൂടുന്നതനുസരിച്ച് നിരീക്ഷണവും ശക്തമാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മന്ത്രി കണ്ണൂരിൽ അവലോകന യോഗത്തിൽ പറഞ്ഞു ദേദ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളും ഷോപ്പിംഗ് മാളുകളും റസ്റ്ററന്റുകളും തുറക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മറ്റന്നാൾ ഇവ തുറന്ന് അണുമുക്തമാക്കും ചൊവ്വാഴ്ച മുതൽ ഇവ നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അറിയിച്ചിരുന്നു കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഇവയുടെ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി

തിരുവനന്തപുരത്തും ആലപ്പുഴയിലും അഞ്ചുപേർക്ക് വീതവും കോഴിക്കോട്ട് നാലു പേർക്കും ഇടുക്കിയിലും വയനാട്ടിലും മൂന്നു പേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചപ്പോൾ കൊല്ലത്ത് രണ്ടുപേർക്കും കോട്ടയത്തും കാസർകോട്ടും ഓരോരുത്തർക്കുമാണ് കോവിഡ് ബാധിച്ചത് രുമ സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് പാലക്കാട് ജില്ലയിലാണ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്

പിമാരും എം എൽ എമാരും നഗരസഭാ അധ്യക്ഷന്മാരും ഉൾപ്പെടെ ജനപ്രതിനിധികളുടെയും ജില്ലാ കലക്ടർ ജില്ലാ പൊലീസ് മേധാവി എന്നിവരുടെയും യോഗം കാസർകോട് കലക്ടറേറ്റിൽ ചേരുമെന്ന് മന്ത്രി ഇ

കൊറോണ പ്രതിരോധ പ്രവർത്തന അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി

ജഗന്നിവാസൻ

ശക്തികുളങ്ങര ഹാർബർ അടച്ചതോടെ നീണ്ടകരയിൽ തിരക്കേറുന്നുവെന്ന പൊലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രേര മസ്ക്കറ്റ് ദോഹ എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളുമായി രണ്ട് വിമാനങ്ങൾ ഇന്നലെ കൊച്ചിയിലെത്തി

പശ്ചിമബംഗാൾ സ്വദേശികളായ ഇവരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാണ് നാട്ടിലേക്ക് തിരിച്ചയച്ചത് രുമ വയനാട് ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്താനും കാലവർഷക്കെടുതികൾ നേരിടാനും നിയോജകമണ്ഡല പഞ്ചായത്ത് തലങ്ങളിൽ സർവ്വകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചു മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല സർവ്വകക്ഷി യോഗത്തിലാണ് തീരുമാനം രുര കോവിഡ് അതിജീവനത്തിനൊപ്പം മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി കാലവർഷ കെടുതിയുണ്ടായാൽ തുറക്കേണ്ട ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി സ്കൂളുകളും മറ്റ് കെട്ടിടങ്ങളും സജ്ജീകരിക്കാൻ മന്ത്രി ജി സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ദേദ കോവിഡ് സാഹചര്യത്തിൽ ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടികൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നടത്താൻ കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്വത്തോടെ വീടുകളിൽ യോഗ പരിശീലിക്കാനാണ് ആയുഷ് മന്ത്രാലയം ഇത്തവണ പ്രോത്സാഹനം നൽകുന്നത് എന്റെ ജീവിതം എന്റെ യോഗ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വീഡിയോ ബ്ലോഗിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആവശ്യപ്പെട്ട കാര്യം ഐ

ആർ അധ്യക്ഷൻ ഡോ വിനയ് സഹസ്ര ബുദ്ധെ ഡൽഹിയിൽ ഓർമ്മിപ്പിച്ചു

മധുരയിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന രാമനാഥപുരം സ്വദേശി മോഹനന്റെ മകളാണ് നേത്ര

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രുമ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രി ജെ

വിവിധ സംഘടനകളും വ്യക്തികളും നൽകിയ ആറു പരാതികൾ പരിഗണിച്ചാണ് നടപടി രുമ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പാവപ്പെട്ട രോഗികൾക്ക് ലഭിക്കുന്നതിലെ അനിശ്ചിതത്വം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് എം കെ രാഘവൻ എം പി കത്തയച്ചു പദ്ധതിയിൽ അപേക്ഷ നൽകിയ നിർദ്ദന രോഗികൾ ധനസഹായം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണെന്ന് കത്തിൽ പറയുന്നു